ശ്രീലങ്കയിൽ രണ്ട് ഭീകര സംഘട്ടന്റ്കളെ നിരോധിക്കാൻ തീരുമാനം രാജ്യത്തെ സ്ഥിതിഗ്രികൾ മെച്ചപ്പെട്ടുവരികയാണെന്ന് പ്ലിധീനമന്ത്രി

ഐ

എൽ ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപ്പിറ്റൽസ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനേയും കൊൽക്കത്താ നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇൻഡ്യൻസിനേയും നേരിടും

പശ്ചിമ ബംഗാളിലെ റായ്ഗഞ്ച് മണ്ഡലത്തിലെ മൂന്ന് ബൂത്തിലും നാളെ റീ പോളിംഗ് നടക്കും

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി

അധ്യക്ഷൻ അമിത് ഷാ കോൺഗ്രസ്സ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ബി

അധ്യക്ഷ മായാവതി എന്നിവർ വിവിധ ഇടങ്ങളിൽ നടന്ന റാലികളെ അഭിസംബോധന ചെയ്തു നിരവധി ക്ഷേമ പദ്ധതികൾ എൻ

എ ഗവൺമെന്റ് അവതരിപ്പിച്ചതായി ഉത്തർപ്രദേശിലെ കനൌ ജിൽ നടന്ന പൊതു സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറ ഞ്ഞു ഭീകരവാദത്തെ ബി ജെ

ഒരുതരത്തിലും പിന്തുണ യ്ക്കില്ലെന്നും ദേശീയ സുരക്ഷയ്ക്കായി പോരാടുമെന്നും അദ്ദേഹം രാഹുൽഗാന്ധി റായ്ബറേലിയിലും അമേഠിയിലും പറഞ്ഞു പ്രചാരണം നടത്തി യുവാക്കൾക്കായി എൻ

എ ഗവൺമെന്റ് യാതൊന്നും ചെയ്തില്ലെന്നും തൊഴിലില്ലായ്മ നിരക്ക് രാജ്യത്ത് ഏറ്റവും ഉയരത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു

യും കോൺഗ്രസ്സും സമ്പന്നർക്ക് വേണ്ടി ക് മ്യൂരുമാണ് പ്രവർത്തിക്കുന്ന തെന്ന് ബി

ദാരിദ്ര്യവും തൊഴി ലില്ലായ്മയും അവസാനിപ്പിക്കാന്റ് കോൺഗ്രസ്സ് ഒന്നും ചെയ്തിട്ടി ല്ലെന്നും അവർ പറഞ്ഞു

ജെ

കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രീയങ്കഗാന്ധി ഉത്തർപ്രദേശിൽ ഇന്ന് റോഡ്ഷോ നടത്തുന്നുണ്ട് രാജസ്ഥാനിലാണ് ബി ജെ

നേതാവ് മായാവതിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടികൾ

സംസ്ഥാന ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിൽ നിയന്ത്രണം വേണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചീഫ് സെക്രട്ടറിയെ രേഖാമൂലം അറിയിച്ചു വോട്ടിംഗിൽ ക്രമക്കേടുകൾ ഉണ്ടെന്ന് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലും പരാതികൾ ഉയർന്നിരുന്നു എന്നാൽ ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല

ജെ

ചിഞ്ചോളിയിൽ നിന്ന് ഡോ ഉമേഷ് ജാദവിന്റെ ിമ്പകൻ അവിനാഷ് ജാദവും കുണ്ട്ഗോ ളിൽ നിന്ന് ചിക്കനഗൌഡ് ഢട്ടീലും ബി ജെ

സുബ്ട്ട്ഷ് റാത്തോടിനെ ചിഞ്ചോളിയിൽ നിന്നും കുസുമവതി ശിവല്ലിയെ കുണ്ട്ഗോളിൽ നിന്നും മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ്സ് തീരുമാനം മുനിസിപ്പൽ ഭരണകാര്യ മന്ത്രി സി

എൽ എ ഉമേഷ് ജാദവ് രാജി വച്ച് ബി ജെ

യിൽ ചേർന്നതോടെയാണ് ചിഞ്ചോളി നിയമ സഭയിലേക്ക് ഉപതെരെഞ്ഞെടുപ്പ് നടത്തിയത്

ആക്രമണത്തിന് ശേഷമുള്ള ശ്രീലങ്കയിലെ അടിയന്തിര നടപടികളുടെ ഭാഗമായാണ് നിരോധനം രാജ്യത്തെ സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടുവരികയാണെന്ന് പ്രധാനമന്ത്രി റനിൽ വിക്രമ സിൻഹെ പറഞ്ഞു വിശദാശങ്ങളുമായി ബിന്ദു

ശ്രീലങ്കയിൽ പ്രവർത്തിക്കുന്ന മറ്റു ഭീക്ടർ സംഘടനകളും നിരോധിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടൂണ്ട്

അതിനിടെ ശ്രീലങ്കയിൽ നടന്ന തീവ്രവാദ ആക്രമണത്തിന്റെ സൂത്രധാരൻമാരെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ മികച്ച രീതിയിൽ തുടരുകയാണെന്ന് പ്രധാനമന്ത്രി റെനിൽ വിക്രമ സിൻഹേ അറിയിച്ചു

ഇത്തരം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ തന്റെ ഗവൺമെന്റ് സ്വീകരിക്കുമെന്നും വിക്രം സിൻഹേ വ്യക്തമാക്കി ചാവേർ ആക്രമണങ്ങളെ സംബന്ധിച്ച ഇന്റലിജൻസ് റിപ്പോർട്ട് ഇന്ത്യ ശ്രീലങ്കയ്ക്ക് കൈമാറിയിരുന്നതാണെന്നും എന്നാൽ അതിനനുസരിച്ച് നടപടിയെടുക്കാൻ സാധിച്ചില്ലെന്നും ശ്രീലങ്കൻ പ്രധാനമന്ത്രി വിശദീകരിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

അനധികൃത ആയുധ കടത്തിനെതിരെ ആഗോളതലത്തിൽ നടത്തുന്ന പോരാട്ടങ്ങളെ ഇത് ദോഷകരമായി ബാധിക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ അഭിപ്രായപ്പെട്ടു അന്താരാഷ്ട്ര ആയുധ വ്യാപാരത്തിൽ സുതാര്യത കൊണ്ടുവരാൻ നടത്തുന്ന ശ്രമങ്ങളെ യു

ആയുധ വ്യാപാര കരാറിൽ പങ്കാളികളാകുന്നതിനായി എല്ലാരാജ്യങ്ങളും സ്വാഗതം ചെയ്യു മെന്നും യൂറോപ്യൻ യൂണിയൻ മുഷ്യൂ ന്യ്തന്ത്രജ്ഞ വ്യക്തമാക്കി

നിലവിൽ വടക്കുപടിഞ്ഞാറൻ ദിശയിലേക്കാണ് ഫോണി നീങ്ങുന്നത്

ചൊവ്വാഴ്ചയോടെ വടക്കു പടിഞ്ഞാറൻ ദിശയിലേക്ക് നീങ്ങി തുടങ്ങും കേരളമുൾപ്പെടെ വിവിധ ഇടങ്ങളിൽ നാളെ മുതൽ ശക്തമായ മഴയ്ക്കും സാധ്യതയു ണ്ട് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ തമിഴ് നാട്ടിലെയും ആന്ധ്രാപ്ര ദേശിലെയും തീരപ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറി യിപ്പുണ്ട്

അത്യുഷ്ണത്തെ തുടർന്ന് ഒഡീഷയിലെ ജലസ്രോതസ്സുകൾ എല്ലാം വറ്റിവരണ്ട നിലയിലാണ് തെലങ്കാനയിലും സ്ഥിതി ഭിന്നമല്ല പടിഞ്ഞാറൻ കാറ്റ് വീശുന്നതിനാൽ തെലങ്കാനയിലും വരും ദിവസങ്ങളിൽ ചൂട് കൂടുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇതോടെ രാജസ്ഥാൻ പ്ലേ ഓഫ് സാദ്ധ്യതകൾ നിലനിർത്തി

ഈ ട്രെയിനിലേക്കുള്ള ടിക്കറ്റുകൾ ബുക്കിംഗ് തുടങ്ങി ആദ്യ മണിക്കൂറിൽ തന്നെ വിറ്റ് തീർന്നിരുന്നു

എൽ എസി പരീക്ഷയുടെ മൂല്യനിർണയ ക്യാമ്പുകൾ നാളെ സമാപിക്കും

മൂല്യനിർണയത്തിനു ശേഷമുള്ള ടാബുലേഷൻ ജോലികൾ മേയ് രണ്ടിനകം പരീക്ഷഭവനിൽ പൂർത്തിയാകും

ജില്ലാ പോലീസ് സേനയുടെ നേതൃത്വത്തിൽ പ്രദേശത്തുണ്ടായ തെരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്

യുറീവ്ക്ക ഗ്രാമത്തിൽ വ്യാഴാഴ്ചയാണ് അത്യാഹിതമുണ്ടായത്

പത്താൻകോട്ടിൽ നിന്നും ഡൽഹൌസിലേക്കുള്ള യാത്രാമധ്യേ ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത്